റിസർവ് ബാങ്ക് പണനയം പ്രഖ്യാപിച്ച്ചു വായ്പാ പലിശ നിരക്കുകളിൽ മാറ്റമില്ല രാജ്യ്പ്പ് വളർച്ചയുടെ പാതയിലെന്ന് ആർ

ഐ

രാജ്യത്ത് കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടില്ലെന്നും പ്രതിരോധ നടപടികളിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും കേന്ദ്രമന്ത്രി ഹർഷവർധൻ

പശ്ചിമബംഗാളിൽ നാലും അഞ്ചും ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതം

ഈ സീസണിലെ ഐ

എൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ ചെന്നൈയിൽ തുടക്കം

വിദ്യാർത്ഥികളുടെ സൌൾയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകും പരീക്ഷാ സമയ്ത്ത്ത് ്പിരിമുറുക്കം ഇല്ലാതാക്കി വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസിവും മനോവീര്യവും വർദ്ധിപ്പിക്കാൻ ചർച്ച പ്രയോജനകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് അഭിപ്രായപ്പെട്ടു

ആഗോള ആരോഗ്യ വിഷയങ്ങളും പ്രശ്നങ്ങളും ലോകശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ദിനാചരണം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയായാണ് ലോകാരോഗ്യ സംഘടന കാണുന്നത് ആരോഗ്യ രംഗത്തെ സുരക്ഷിതമില്ലായ്മയ്ക്ക് പ്രലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ശാരീരിക്കുറും മാനസികവും മാത്രമല്ല സാമൂഹിക പ്രശ്നങ്ങളും ആരോഗ്യ രംഗത്ത് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്

എല്ലാവർക്കും മികച്ചതും ആരോഗ്യകരവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ ആശയം ആരോഗ്യകരമായ ലോകത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്നവർക്ക് നന്ദി പ്രകടിപ്പിക്കാനും അവരെ അനുമോദിക്കാനുമുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി സർക്കാർ ആയൂഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ഔഷധി യോജന തുടങ്ങിയ നിരവധി പദ്ധതികൾ നടപ്പാക്കിവരികയാണ്

കോവിഡ് പോരാളികളുടെ ഊർജ്ജസ്വലമായ പ്രത്യിരോധ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി ട്വിറ്ററിൽ പ്രശംസിച്ചു

കോവിഡ് മാർഗ്ഗരേഖ പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാവരുതെന്നും ഹർഷ് വർദ്ധൻ ടിറ്ററിൽ കുറിച്ചു

മഹാരാഷ്ട്രയിലും പഞ്ചാബിലും മരണനിരക്ക് ക്രമാതീതമായി ഉയർന്ന രീതിയിലാണ് രോഗവ്യാപനം തടയാൻ എല്ലാ കേന്ദ്ര സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു

പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുന്ന സ്വകാരൃ വാഹനം പൊതുസ്ഥലത്തിന്റെ പരിധിയിൽ വരുമെന്ന് കോടതി വ്യക്തമാക്കി ഇതിനെതിരായ ഹർജി കോടതി തള്ളി മാസ്ക് വൈറസിനെതിരായ സുരക്ഷാ കവചമാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി

ഗുരുതേജ് ബഹാദൂറിന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും യോഗത്തിൽ സംബന്ധിക്കും

പശ്ചിമ ബംഗാളിൽ വിവിധ കക്ഷികളിലെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിനുണ്ട് കേന്ദ്രമിത്തി അമിത് ഷാ ഇന്ന് എൻ ഡി എ യ്ക്ക് വേണ്ടി പ്രചാരണം ന്ടത്തു്ം നാല് റോഡ് ഷോകളിൽ അദ്ദേഹം പങ്കെടുക്കും സിംഗൂർ ഭോംജ്ജൂർ ഹൌറ ബഹാലപൂർബ എന്നിവിടങ്ങളിലാണ് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മുഖ്യമന്ത്രി മമതാ ബാനർജി സജീവ പ്രചാരണത്തിലാണ്

നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ശനിയാഴ്ച അവസാനിക്കുന്നതോടെ പശ്ചിമ ബംഗാളിലെ അഞ്ചാംഘട്ട വോട്ടെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യക്തമാകും

ഒറ്റ ഘട്ടമായി നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു മലപ്പൂറം കന്യാകുമാരി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും പൂർത്തിയായി

ഡി

എം ജില്ലാ ഉസ്ക്രട്ടറി എം

ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു

നിലവിലെ ചാമ്പൃൻ മുംബൈ ഇന്ത്യൻസും ബംഗളൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിൽ ചെന്നൈയിലാണ് ആദ്യമത്സരം

മുംബൈ ചെന്നൈ ഡൽഹി അഹമ്മദാബാദ് കൊൽക്കത്ത ബംഗളൂരു എന്നിആറ് വേദികളിലാണ് മത്സരം

ഫാത്തിമ സക്കറിയ അന്തരിച്ചു

ഔറംഗാബാദിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്

ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്പദേശ് ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഗോതമ്പ് സംഭരിച്ചത്